ഇന്ത്യയുടെയും ലോകത്തിന്റെയും ക്ഷേമം മുൻനിർത്തി ആവിഷ്കരിച്ച സ്വയംപര്യാപ്ത ഭാരതത്തിന്റെ അന്തഃസത്ത ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ദർശനങ്ങൾ ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കേരള സർക്കാരിന്റെ രണ്ടാംഘട്ട നൂറുദിന കർമ്മ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു പതിനായിരം കോടിയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി

ശാന്തിനികേതനിലെ വിശ്വഭാരതി സർവകലാശാലയുടെ നൂറാം സ്ഥാപക ദിനാഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം വിശ്വഭാരതി സർവ്വകലാശാല പകർന്നു നൽകുന്ന സന്ദേശമാണ് ഇന്ത്യ ലോകമെങ്ങും പ്രപ്രഘോഷിക്കുന്നതെന്ന് സർവ്വകലാശാല ചാൻസലർ കൂടിയ്യായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

പാരിസ് ഉടമ്പടിയുടെ പ്രഖ്ചൂർപിത ലക്ഷൃങ്ങൾ പൂർത്തീകരി ക്കുന്ന ചുരുക്കം ചില്ലൂ ർാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും അന്തീരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിലൂടെ കാലാവസ്ഥ സംരക്ഷണ മുന്നേറ്റങ്ങൾക്ക് നാം നേതൃത്വം നൽകുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ബംഗാളിലെ ഭക്തി പ്രസ്ഥാനത്തെപ്പറ്റി സംസാരിക്കവേ ഇന്ത്യൻ സ്വാതന്ത്രൃ സമര ചരിത്രത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് ഏറെ സംഭാവന നൽകാൻ ആയതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി സ്വാശ്രയ ഭാരത മുന്നേറ്റത്തിന്റെ പ്രാധാന്യ ത്തെപ്പറ്റി സംസാരിക്കവേ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ആയി വിദ്യാർഥികൾക്ക് സമൂഹ മാധ്യമങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ആകുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ദേശീയത സംബന്ധിച്ച ടാഗോറിന്റെ ചിന്തകളിൽ സ്വാശ്രയ ഭാരത സ്വപ്നങ്ങൾ കണ്ടെത്താനാകുമെന്നും പ്രധാനമന്ത്രി അനുസ്മരിച്ചു

ആറ് സംസ്ഥാനങ്ങളിലെ കർഷകരുമായി ചടങ്ങിൽ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അനുഭവങ്ങൾ കർഷകർ പ്പിക്കുവെയ്ക്കും

ആക്കെ രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്സാൻനത്താണ് ഇന്ത്യ

ജയ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ജയ്പൂർ റിങ് റോഡിന്റെ നിർമാണവും ഇതിൽ ഉൾപ്പെടുന്നു സംസ്ഥാനത്തെ വിനോദസഞ്ചാര സാദ്ധ്യതകൾ വർധിപ്പിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കാനും സായുധസേനകളുടെ നീക്കത്തെ സുഗമമാക്കാനും പദ്ധതികൾ ഗുണം ചെയ്യും

ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലക്കളുംവ്ഴി പൊതുജന ങ്ങൾക്ക് പരിപാടി കേൾക്കാവ്യുന്നുതാണ്

ലോകമെമ്പാടും സന്തോഷവും സമാധാനവും വളർത്താനും മനുഷ്യമനസ്സുകളിൽ സാഹോദര്യം നിലനിർത്താനും ഈ ഉത്സവം ഉപകരിക്കട്ടെയെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു കോവിഡ് വെല്ലുവിളികൾ പരിഗണിച്ച് ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തണം എന്ന് രാജ്യത്തെ ജനങ്ങളോട് ഉപരാഷ്ട്രപതി എം

ഡി

സ്സ്മാനത്തിന്റെ വരുമാന വളർച്ചയിൽ ഉണ്ടാകുന്ന ഇടിവ് ദേശീയ തലത്തിലേക്കാൾ കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പരിഹാരം കണ്ടെത്താനും സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്ന് കർഷക സംഘടനകൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര സർക്കാർ വൃക്തമാക്കി അടുത്ത ചർച്ചക്കുള്ള തീയതിയും സമയവും നിശ്ചയിക്കാൻ കർഷക സംഘടനകളോട് സർക്കാർ ആവശ്യപ്പെട്ടു സമരം ചെയ്യുന്ന കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ തുറന്ന മനസ്റ്റോടെ സമീപിക്കാനും അവയ്ക്ക് യുക്തിസഹമായ പരിഹാരം കാണാനും സർക്കാർ സദാ സന്നദ്ധമാണെന്ന് കൃഷി മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി വിവേക് അഗർവാൾ പറഞ്ഞു

സമ്മേളനത്തിനായുള്ള അനുമതിട്ടുത്ടി ് വീണ്ടും ഗവർണർക്ക് ശുപാർശ നൽക്കാൻ മ്ന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രീ പ്ലാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു മണിക്കൂർ നേരം കർഷകരുടെ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച്ച്ചെയ്യും

വിദേശികൾ എന്ന് പ്രഖ്യാപിക്കാത്തിടത്തോളം ഇവരുടെ വോട്ടവകാശം തടയപ്പെട്ടില്ലെന്നു ഗുവാഹത്തിയിലെ മുഖ്യതെരഞ്ഞെടുപ്പ് കാര്യാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വൃക്തമാക്കി

ഇതിലൂടെ തദ്ദേശീയമായി വികസിപ്പിച്ചുടുക്കുന്ന മിസൈലുകളുടെ സാങ്കേതിക വിദ്ദീയ്ക് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ക്ട്രിക്ക് ആയതായി അദ്ദേഹം ട്വീറ്റ് ചെയ്തു